ജസ്റ്റിസുമാരായ എൻ വി രമണ അശോക് ഭൂഷൺ സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബെഞ്ച് പതിനൊന്നരയ്ക്കാണ് പരിഗണിയ്ക്കുന്നത് ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ മൂന്ന് പാർട്ടികളുടെയും ക്ഷണി യ് ക്കാൻ സഖ്യ ത്തെ ഗവർണർ ഭഗത്സിംഗ് കോഷ്യാരിയ്ക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്

ബി ജെ പിയ്ക്കൊപ്പം ചേർന്ന അജിത് പവാറിനെ എൻ സി പി നിയമസഭാകക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി വിപ്പ് നൽകാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന അധികാരവും എടുത്തു ക ള ഞ്ഞു പാർട്ടി അധ്യക്ഷൻ ശരത്പവാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗമാണ് പ്രമേയത്തിലൂടെ ഈ തീരുമാ നമെടുത്തത് മഹാരഷ്ട്ര എൻ സി പി പ്രസിഡണ്ട് ജയന്ത് പാട്ടീൽ ആണ് പുതിയ നിയമസഭാകക്ഷി നേതാവ്

തന്നെ ബി ജെ പി ഗവൺമെന്റിനെ പരാജയപ്പെടുത്തുമെന്നും മാലിക് വൃക്തമാക്കി

യു പി എ ഭരണ കാലത്ത് കോൺഗ്രസ് കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ട് കള്ളപ്പണമായും വെള്ളപ്പണമായും വാങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു

കർഷകതാത്പരൃമാണ് എൻ ഡി എ ഗവൺമെ ന്റിന്റെ മുഖമുദ്രയെന്ന് വൃക്തമാക്കുന്നതാണ് ആർ സി ഇ പി കരാ റിൽ നിന്ന് പിൻവാങ്ങിയ നടപടിയെന്നും വി മുരളീധരൻ അഭി പ്രായപ്പെട്ടു

അധ്യാ പകരുടെയും ഡോക്ടർമാരുടെയും അനാസ്ഥ മൂലമാണ് രണ്ട് മണിക്കൂറോളം കുട്ടിയ്ക്ക് മതിയായ ചികിത്സ് ലഭിക്കാതിരുന്ന തെന്ന് കമ്മീഷൻ വിലയിരുത്തി

ജില്ല യിലെ എല്ലാ സ്കൂളുകളിലും മിന്നൽപരിശോധന നടത്തി കുട്ടി കളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ കാര്യങ്ങളെപ്പറ്റി കല ക്ടർക്ക് റിപ്പോർട്ട് നൽകാൻ നാഷണൽ സർവീസ് സ്കീം വൊളണ്ടിയർമാരെ നിയമിച്ചു

കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചു ബോധവത്കരണം നടത്തുകയും അതുവഴി അവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് അക്കാദമി യുടെ ഈ വർഷത്തെ മുഖ്യ ലക്ഷ്യം സമ്മേളനം ആരോഗൃ സർവ്വകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ

നായർ ഉദ്ഘാടനം ചെയ്തു ന്യൂഡൽഹി അന്താരാഷ്ട്ര വൃാപാര മേളയിൽ കേരള ദിനാ ഘോഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ഉദ്ഘാ ടനം ചെയ്യും മന്ത്രി കടകും പള്ളി സുരേന്ദ്രൻ അധൃക്ഷനാ കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വിവിധ വകുപ്പുകളുടെയും കേരള ഹൌസിന്റെയും സഹകരണത്തോ ടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

അവസാനിച്ച മൂന്ന് മാസത്തെ സ്ഥിതിവിവരക്കണക്കാണിത് കഴിഞ്ഞ സാമ്പത്തികവർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാ ണിതെന്നും എൻ എസ് ഒ ബുള്ളറ്റിൻ വൃക്തമാക്കി

ദൂരദർശനും പരിപാടി സംപ്രേഷണം ചെയ്യും പ്രധാനമന്ത്രി യുടെ പ്രഭാഷണം കഴിഞ്ഞാലുടൻ അതിന്റെ മലയാള പരി ഭാഷ കേൾക്കാം

ഇന്ന് ഒഡീഷ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടും

ആൺകു ട്ടി ക ളിൽ മേരിഗിരി ഇംഗ്ലീഷ്മീഡിയം സ്കൂളാണ് ജേതാക്കൾ

കൽപ്പറ്റയിൽ പ്രീവൈഗ കാർഷിക പ്രദർശന മേള ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മന്ത്രി

എൻ എസ് എസും എൻ സി സിയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഇതിന് നേതൃത്വം നൽക ണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു

മായം കലരാത്ത ഗുണമേൻമയേറിയ ഭക്ഷ്യാ ത്പന്നങ്ങൾ നൽകാൻ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപ നങ്ങൾക്ക് കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു

കാസർകോട് പരപ്പ ബ്ലോക്ക് ക്ഷീരകർഷക സംഗമം കാലിച്ചാമരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഈ കോഴ്സുകളിൽ ചേർന്ന് വിദ്യാർത്ഥികൾ വഞ്ചിതരാകരുതെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകി

സംസ്ഥാന സ്കൂൾ കലോത്സവം പ്രമാണിച്ച് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കാഞ്ഞങ്ങാട്ട് പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ചു ബുധനാഴ്ച മുതൽ ഡിസംബർ രണ്ട് വരെയാണ് ട്രെയിനു കൾക്ക് താത്ക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചത്

ബെങ്ക ലൂരുവിൽ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നാണ് ക്രൈബ്രാഞ്ച് സംഘം ഫോൺ കണ്ടെടുത്തത് ആറാം പ്രതി പ്രവീണിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്തി തട്ടി പ്പിന്റെ വിശദാംശങ്ങൾ പുറത്തുകൊണ്ടുവരാനാവും എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതീക്ഷ ൾ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ നിലമ്പൂർ മേരിമാത എഡ്യൂക്കേഷൻ ഗൈഡൻസ് ട്രസ്റ്റ് എം

ഇന്നലെ മൂവാറ്റുപുഴയിലെ ഒരു ബാറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്

കുടത്തായി കൊല പാ തക പരമ്പരയിലെ മുഖ്യപ്രതി ജോളിയെ വ്യാജ ഒസ്യത്ത് തയ്യാറാക്കാൻ സഹാ യിച്ച കട്ടാങ്ങൽ സി പി ഐ എം മുൻലോക്കൽ സെക്രട്ടറി കെ

ടോം തോമസ് കേസിൽ രണ്ടാം പ്രതി എം എസ് മാത്യുവിനെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും

വാത്തിക്കുടി യൂണിറ്റ് ക്ഷീരസംഗമവും നാര കക്കാനം ആപ്കോസ് കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു ഡീൻകുര്യാക്കോസ്

സംസ ്കാരം വൈകിട്ട് പാണപ്പുഴ സമുദായ ശ്മശാനത്തിൽ നടക്കും